പാർലമെന്റിന്റെ ശൈതൃകാല സമ്മേളനം നാളെ മുതൽ ന് സർവ്വകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു

കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കഴിഞ്ഞു വിശദാംശങ്ങളുമായി സുനീഷ്

ത്രിതല സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്

രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ ജില്ലയിലെ കരൺപൂർ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട് ഒരു പോളിംഗ് ബൂത്തിൽ ഇന്ന് റീപ്പോളിംഗ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പിനിടെ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് ഇവിടെ റീപ്പോളിുഗ് നടക്കുന്നത്

ഉന്നതതല പ്രതിനിധി സംഘവും രാഷ്ട്രപതിയെ അനുഗമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മ്യാൻമാറും നടപ്പുവർഷം ആദ്യം മ്യാൻമാർ സ്റ്റേറ്റ് കൌൺസിലർ ആങ് സാങ് സ്യൂകി ന്യൂഡൽഹിയും സന്ദർശിച്ചിരുന്നു നേതാക്കളുടെ ഈ സന്ദർശനത്തിലൂടെയുണ്ടായ മികച്ച ബന്ധം അതുപോലെ നിലനിർത്തുന്നതിന് കൂടിയാകും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ സന്ദർശനമെന്നും വിലയിരുത്തപ്പെടുന്നു സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ത്യൻ നാഷണൽ ആർമിയിലെ അംഗങ്ങളായിരുന്നവരുമായി കൂടിക്കാഴ്ച നടത്തും

നിരവധി കരാറുകളിലും ഇരുര്ലാജ്യങ്ങളും ഒപ്പുവയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു

യു പി ഗവർണർ റാംനായിക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തെ അനുഗമിച്ചു മഹാറാണ പ്രതാപ് ശിക്ഷാ പരിഷത്ത് പരിപാടിയിൽപങ്കെടുത്ത് രാഷ്ട്രപതി പ്രതിഭാശാലികളായ കുട്ടികളെ അഭിനന്ദിച്ചു

ഭൂ ഇരു സഭകളുടെയും സുഗമമായ നടത്തിപ്പിന് രാഷ്ട്രീയ് പ്പാർട്ടികളുടെ പൂർണ്ണ സഹകരണം കേന്ദ്ര ഗവൺമെന്റ് യ്യോഗത്തിൽ ആവശ്യപ്പെടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോർത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു റിപ്പോർട്ട്

രാജ്യസഭയുടെ സുഗമമായ നടത്തിപ്പിന് രാജ്യസഭ അദ്ധ്യക്ഷൻ എം

ലോകസഭയുടെ പ്രവർത്തനം സുഗമമാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുമായി സ്പീക്കർ സുമിത്രമഹാജൻ നാളെ ചർച്ച നടത്തും അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന സമ്പൂർണ്ണ പാർലമെന്റ് സമ്മേളനമാണിത്

ജനുവരി എട്ടിന് സമ്മേളനം അവസാനിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗവർണറുടെ തീരുമാനത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് എസ് കെ കൌൾ എന്നിവരടങ്ങിയ ബഞ്ച് അറിയിച്ചു ബി ജെ പി നേതാവ് ഗഗൻ ഭഗത് ആണ് ഹർജി സമർപ്പിച്ചത്

പാരീസ് കാലാവസ്ഥാ ഉടമ്പടി ഫ്രാൻസിലെ പ്രക്ഷോഭങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഡോണൾഡ് ട്രംപ് അടുത്തിടെ ട്വീറ്റ് ചെയ്തിരുന്നു

അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അത് ഫ്രാൻസ് ഇടപെടാറില്ലെന്നും തിരികെ പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യമന്ത്രീപ്പറഞ്ഞു

സഭ സമ്മേളിച്ച ഉടൻ തന്നെ ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാകൃം വിളിച്ചുകൊണ്ട് സ്പീക്കർക്ക് ചുറ്റും വലയം തീർത്തു ചോദ്യോത്തരവേള തടസപ്പെടുത്തരുതെന്ന സ്പീക്കറുടെ അഭ്യർത്ഥന തള്ളി പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാകൃം വിളി തുടർന്നു തുടർന്ന് മറ്റ് നടപടിക്രമങ്ങൾ തീർത്ത് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ പി

അരമണിക്കൂർ മാത്രമാണ് ഇന്ന് സഭ സമ്മേളിച്ചത്

തീർത്ഥാടകർക്കൂർത്തിച്ചു ഗ്ഗവൺമെന്റും ദേവസ്വം ബോർഡും ഒരുക്കിയ ് ്സംവിധാനങ്ങൾ പോരായ്മകൾ അടിയന്തരമായി ചെയ്യേണ്ട്ട് കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച് നിരീക്ഷക സമിതി ക്ലിക്കിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലും പരിസരപ്രദേശങ്ങളിലും നടത്തിയ സന്ദർശനത്തിന്റെ വിലയിരുത്തലായിരിക്കും റിപ്പോർട്ടിലുണ്ടാവുക ജസ്റ്റീസ് പി

രാമൻ ജസ്റ്റീസ് എസ് സിരിജഗൻ ഡി ജി പി എ ഹേമചന്ദ്രൻ എന്നിവരടങ്ങുന്നതാണ് നിരീക്ഷക സമിതി

കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്ത്

മൂന്ന് പോയിന്റിന്റെ വ്യത്യാസമാണ് ഇരു ജില്ലകളും തമ്മിലുള്ളത്

പ്രവേശനം സംബന്ധിച്ച് മൂന്ന് വിദ്യാർത്ഥിനികൾ സമർപ്പിച്ച പൊതു താൽപരൃ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ഇതിന് പുറമേ ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗയുടെ ചുമതലയുള്ള ട്രസ്റ്റിനോട് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ അഭിപ്രായം അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടു

ഇന്ത്യും അർജന്റീന ഓസ്ട്രേലിയ എന്നീ ടീമുകൾ നേരത്തെ ്ക്വാർട്ട്ർ ബർത്ത് ഉറപ്പാക്കിയിരുന്നു

ഇന്ന് രണ്ട് മൽസരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിലുള്ളത്

നടക്കുന്ന മൽസരങ്ങളിൽ പാകിസ്ഥാൻ നാളെ ബൽജിയവുമായും നെതർലന്റ്സ് കാനഡയുമായും ഏറ്റുമുട്ടും